ഗോവയിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ചർച്ചകൾ പുരോഗമിക്കുന്നു

പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ

ആർ നഗറിലെ ആറുവയസുകാരൻ മരിച്ചു ഇന്നലെ അന്തരിച്ച ഗോവ മുഖ്യമന്ത്രിയും മുൻ രാജ്യരക്ഷാ മന്ത്രിയു മായ മനോഹർ പരീക്കറിന് നാടിന്റെ അന്ത്യാജ്ഞലി

മനോഹർ പരീക്കറുടെ മൃതദേഹം നേരത്തെ പനാജിയിലെ ബിജെപി ആസ്ഥാനത്തും പിന്നീട് കലാഅക്കാദമിയിലും പൊതുദർശനത്തിന് വെച്ചു

നരേന്ദ്രമോദി ഗവൺമെന്റിൽ മൂന്ന് വർഷത്തോളം രാജ്യരക്ഷാമന്ത്രി യായിരുന്നു മനോഹർ പരീക്കർ നാല് തവണ ഗോവ മുഖ്യമന്ത്രിയായി പാക് അധീന കശ്മീരിൽ ഇന്ത്യൻ സേനയുടെ മിന്നലാക്രമണത്തിന് പിന്നിലെ ആസൂത്രകൻ ്മനോഹർ പരീക്കറായിരുന്നു

ഇന്ത്യ തദ്ദേശീയമായി വിക സിപ്പിച്ച തേജസ് യുദ്ധവിമാനം വ്യോമസേനയിൽ ഉൾപെടുത്തിയതിന് പിന്നിലും മനോഹർ പരീക്കറുടെ പരിശ്രമമുണ്ടായിരുന്നു ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറിന്റെ മരണത്തെതുടർന്ന് മുഖ്യ മന്ത്രിയെ കണ്ടെത്തുന്നതിന് ബിജെപി നേതൃത്വം സഖ്യകക്ഷികളുമായി ചർച്ച ആരംഭിച്ചു കേന്ദ്രമന്ത്രി നിതിൻഗഡ്കരി ഇന്നലെ രാത്രി ഗോവയി ലെത്തി മഹാരാഷ്ട്ര ഗോമാന്തക് പാർട്ടിയുമായും ഗോവ ഫോർവേഡ് പാർട്ടിയുമായും ചർച്ച നടത്തി

മന്ത്രിസഭയുണ്ടാക്കാൻ തങ്ങളെ ക്ഷണിക്കണമെന്നാവ ശൃപ്പെട്ട് കഴിഞ്ഞ ദിവസം ഗവർണർക്ക് കോൺഗ്രസ് നേതാക്കൾ കത്ത് നൽകിയിരുന്നു

തൊട്ടടുത്ത ദിവസം സൂക്ഷ്മപരിശോധന നടത്തും

അരുണാചൽ പ്രദേശ് ജമ്മുകശ്മീർ മേഘാലയ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ രണ്ടുവീതവും അസ്സമിൽ മൂന്ന് ബിഹാറിൽ നാല് ഉത്ത രാഖണ്ഡിൽ അഞ്ച് മഹാരാഷ്ട്രയിൽ ഏഴ് ഉത്തർപ്രദേശിൽ എട്ട് മണ്ഡ ലങ്ങളിലൂമാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് ഇതുകൂടാതെ ഛത്തീസ്ഗഡ് മണി പ്പൂർ മിസ്സോറാം നാഗാലാന്റ് സിക്കിം ത്രിപുര ആന്റമാൻ നിക്കോബാർ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലേക്കും ഇതോടൊപ്പം വോട്ടെടുപ്പ് നടക്കും ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം അരുണാചൽപ്ര ദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു

രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ട മായാണ് നിശ്ചയിച്ചത്

കോൺഗ്രസിന്റെ നാലു സീറ്റൂകളിലെ സ്ഥാനാർത്ഥികളെ ഹൈക്കമാന്റ് ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കെ

സിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നേതൃത്വവുമായി വിശദ ചർച്ച നടത്തിയെന്നും ത്രീരുമാനം ഹൈക്കമാന്റിന് വിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് ആവർത്തിച്ചു

അൽപിസമയം മുൻപ് പ്രതിപക്ഷനേതാവ് ര മേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഡൽഹിയിൽ ചർച്ച നടത്തിയിരു ന്നു വയനാട് വടകര ആലപ്പുഴ ആറ്റിങ്ങൽ സ്ഥാനാർഥികളുടെ കാര്യ ത്തിൽ ഗൌരവമായ തർക്കങ്ങൾ നിലവിലില്ലെന്നും ഉടൻതന്നെ പ്രഖ്യാ പനം ഉണ്ടാവുമെന്നും മുല്ലപ്പള്ളി ഇന്നലെ ന്യൂഡൽഹിയിൽ അറിയിച്ചിരു ന്നു

വയനാട്ടിലെ സ്ഥാനാർത്ഥി ആരാക ണമെന്ന കാര്യത്തിൽ തർക്കം തുടരുകയാണെന്നാണ് സൂചന മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രൊഫ

വി തോമസ് യു

എറണാകുളത്ത് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിഷേധിച്ച തോമസിനെ ഹൈക്കമാൻഡ് അനുനയിപ്പിച്ച പശ്ചാത്തലത്തിലാണ് ചർച്ച

ഡി

കണ്ണൂർ പാർലമെന്റ് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ മുസ്ലീംലീഗ് നേതാവ് ഡോ

ഐ യുമായി സഹകരിക്കാൻ ഒരിക്കലും തയ്യാറ ല്ലെന്നും അത്തരം നടപടിയേക്കാൾ ഭേദം പാർട്ടി പിരിച്ചുവിടുന്നതാ ണെന്നും മുനീർ പറഞ്ഞു

ഡി എഫ് ഘടകകക്ഷികളുടെ വിവിധ നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട് ഇടതുമുന്നണിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്തനംതിട്ടയിൽ എത്തും അദ്ദേ ഹത്തിന്റെ സാന്നിധൃത്തിൽ ചേരുന്ന യോഗത്തിൽ പാർല്മെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങളും സിപിഐഎം ഏരിയ ഭാർവാഹികളും പങ്കെടുക്കും

മനോഹർ പരീക്കറിന്റെ നിര്യാണം മൂലം കേന്ദ്ര തെരഞ്ഞെ ടുപ്പ് സമിതി യോഗം നാളെയായിരിക്കും ചേരുക പത്തനംതിട്ടയിൽ പി എസ് ശ്രീധരൻ പിള്ളയുടെയും കെ സൂരേന്ദ്രന്റെയും പേരുകളാണ് സജീവ പരിഗണനയിൽ എന്നാണ് റിപ്പോർട്ട്

ഡി ജെ എസിന് നൽകിയ തൃശൂർ സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചേക്കുമെന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ ഉദ്യോഗസ്ഥരുടെ പുരിശീലന പ്രിപാടി തുടങ്ങി ഇന്നും നാളെയുമായി എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്നുണ്ട് പാലക്കാട്ട് പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ചും വോട്ടെടുപ്പ് ദിവസം വരെ നീളുന്ന നടപടി ക്രമങ്ങളെ കുറിച്ചും നൽകുന്ന പരിശീലനം ജില്ലാ കലക്ടർ ഡി

കോഴിക്കോട്ട് നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിക്കും ഇന്ന് തുടക്കമായി ക്രീമിലെയർ പരിധി പുനപരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സമിതിയെ നിയോഗിച്ചു മുൻഗവൺമെന്റ് സെക്രട്ടറി ബി

ക്രീമിലെയർ പരിധിനിർണ്ണയത്തിൽ ഇപ്പോഴത്തെ പോരായ്മകൾ പരിഹരിച്ച് ലഘൂകരിക്കണമെന്ന് ആവശ്യ ത്തെ തുടർന്നാണ് കേന്ദ്ര സാമൂഹ്യനീതിമന്ത്രാലയം സമിതി രൂപീകരിച്ച ത്

വൈറസ് ബാധ കണ്ടെത്തുന്നതിന് സാമ്പിളുകൾ ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു പുറത്ത് ആഫ്രിക്കയിലെ വെസ്റ്റ്നൈൽ മേഖലയിലാണ് ആദ്യമായി വൈറസ് ബാധ കണ്ടെത്തിയത് അതിനാലാണ് ഈ പേര് ലഭിച്ചത് പക്ഷി കളിൽനിന്ന് കൊതുകുകളിലേക്ക് എത്തുന്ന വൈറസ് പിന്നീടാണ് മനു ഷ്യരിലേക്ക് പകരുന്നത്

രാത്രി സമയങ്ങളിൽ കടിക്കുന്ന ക്യൂലെക്സ് കൊതുകുകളി ലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നത് രക്ത അവയവ ദാന ത്തിലൂടെയും അമ്മയിൽനിന്ന് മുലപ്പാലിലൂടെ കുഞ്ഞിനും ഗർഭിണി യിൽനിന്ന് ഗർഭസ്ഥ ശിശുവിനും അപൂർവ്വമായി രോഗം ബാധിക്കാം എന്നാൽ നേരിട്ട് മനുഷ്യരിൽനിന്ന് മനുഷ്യരിലേക്ക് പകരില്ല

സി

മലയാളിതാരം ശ്രീശാന്തിന്റെ ആജീവനാന്തവിലക്ക് സുപ്രീംകോടതി നീക്കിയശേഷം ചേരുന്ന ആദ്യയോഗമാണ് ഇന്നത്തേത് ഐ

എൽ മത്സരക്രമം സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും കാസർകോട് ഇരട്ടകൊലപാത്കത്തെ തുടർന്ന് മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ചതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാ ക്കോസ് അടക്കം മൂന്ന്പേർക്കെതിരായ കോടതിയലക്ഷ്യകേസ് ഹൈക്കോ ടതി ഇന്ന് വീണ്ടും പരിഗ്ണിക്കും കേസിൽ സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ച സത്യവാങ്മൂലവും കോടതി പരിഗണിക്കുന്നുണ്ട്

മണ്ഡലകാലത്ത് സന്നിധാനത്തെ പൊലീസ് വിന്യാസം ഭക്തർക്ക് ഏർപ്പെടുത്തിയ പൊലീസ് നിയന്ത്രണം അടിസ്ഥാന സൌകര്യ ങ്ങളുടെ അഭാവം എന്നിവ ചോദ്യം ചെയ്ത ഹർജികൾ അടക്കമാണ് കോട തിയുടെ പരിഗണനയ്ക്ക് വരുന്നത് ഹൈക്കോടതി നിയോഗിച്ച മൂന്നംഗ നിരീക്ഷക സമിതി നൽകിയ അന്തിമ റിപ്പോർട്ടും കോടതി ഇന്ന് പരിഗണി ക്കുന്നുണ്ട് കത്തോലിക്കാ പ്രസിദ്ധീകരണമായ സത്യദീപത്തിന്റെ ചീഫ് എഡി റ്റർ ഫാദർ പോൾ തേലേക്കാട്ടിനെതിരെ പൊലീസ് എഫ്

സീറോ മലബാർ സഭയുടെ ഉന്നതാധികാരി കർദ്ദിനാൾ മാർ ആലഞ്ചേരി സാമ്പത്തിക കുറ്റം ചെയ്തെന്ന് വരുത്താൻ വ്യാജരേഖ യുണ്ടാക്കിയെന്നാണ് കേസ് തൃക്കാക്കര പൊലീസ് സ്റ്റേഷനിലാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജമ്മുകശ്മീരിലെ രജൌരിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു സുന്ദർ ബെനി സെക്ടറിലാണ് പുലർച്ചെ പാകിസ്താൻ വെടിവെപ്പും ഷെല്ലാക്രമണവും നടത്തിയത്

ഇന്നലെയും പാകിസ്താൻ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പൂഞ്ചിൽ ആക്രമണം നടത്തിയിരുന്നു അട്ടപ്പാടി വനമേഖലയിൽ കാട്ടു തീ നിയന്ത്രണ്ട് വിധേയമാകാതെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുന്നു കഴിഞ്ഞദിവസം കാട്ടുതീയുടെ വ്യാപ്തി കുറഞ്ഞുവെന്ന നിഗമനത്തിൽ ദുരന്ത നിവാരണ സേനയുടെ ഹെലികോപ്റ്റർ തിരിച്ചയച്ചിരുന്നു

ഒരാഴ്ചയായി പടരുന്ന കാട്ടുതീയിൽ മല്ലീശ്വരൻ മുടിയും പരിസരവും പൂർണ്ണമായും കത്തിയമർന്നു

കഴക്കൂട്ടം സ്വദേശി ഉണ്ണിക്കുട്ടനെയാണ് ഇന്നലെ രാത്രി ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയത് സംഭവത്തിൽ പൊലീസ് അന്വേഷണം ആരംഭിച്ചു

ഒളിവിലായിരുന്ന പ്രതി അർജുനെ ഫോർട്ട് സിഐയുടെ നേതൃത്വത്തിൽ പുലർച്ചെയാണ് പിടി കൂടിയത് നേരത്തെ രഞ്ജിത്ത് മനോജ് എന്നീ രണ്ട് പ്രതികളെ പൊലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഓഹരി സൂചികകളിൽ നേട്ടം